ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ഇന്ന് രാത്രി സിംഗപ്പൂരിലേക്ക് പുറപ്പെടും

അന്ത്യാഞ്ജലി

ക്യാപ്ടൻ വിരാട് കോഹ്ലിയും ഫാസ്റ്റ് ബൌളർ ജസ്പ്രീത് ബുമ്രാഹും ഉന്നത സ്ഥാനങ്ങൾ നിലനിർത്തി

മോദിയുടെ രണ്ടാം സിംഗപ്പൂർ സന്ദർശനമാണിത് ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച മേഖലാ സാമ്പത്തിക സഹകരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്ന രണ്ടാമത് പ്രാദേശിക സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത യോഗത്തിലും തന്റെ രണ്ടാം ദിവസത്തെ സിംഗപ്പൂർ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും

സിംഗപ്പൂരിൽ സംഘടിപ്പിക്കുന്ന ഫിൻടെക് ആഘോഷ പരിപാടികളെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ രാജ്യതലവനായി ശ്രീ

ഇന്തോ പസഫിക് മേഖലയുമായും ് ആ്സിയാൻ അംഗരാജ്യങ്ങളുമായുമുള്ള സഹീക്കരണം ശക്തിപ്പെടുത്താനുള്ള ഇന്ത്യ്യുട്ടെ നിയോഗമാണ് തന്റെ ഉച്ചകോടിയിലെ സാന്നിലൂട്ട് സൂചിപ്പിക്കുന്നതെന്ന് ശ്രീ മോദി തന്റെ സിംഗപ്പൂർ യാത്രയ്ക്ക് മുൻപ് നടത്തിയ പ്രസ്താവനയിൽ പറഞ്ഞു

വിവിധ ഗവൺമെന്റ് വകുപ്പുകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഗവേഷണ വികസനു മുണ്ണോറട്ടറികളും വ്യവസായങ്ങളുമായി ശക്തമായ ബ്ദ്ധ് സ്ഥാപിക്കാൻ ശ്രമിക്കണമെന്ന് ശ്രീ

സ്കൂൾ വിദ്യാർത്ഥികളില്ല് ശാസ്ത്ര അഭിരുചി കണ്ടെത്താനും പരിപോഷിപ്പിക്കാനുമായി ഉചിതമായ സംവിധാനങ്ങൾ വികസിപ്പിക്കണമെന്നും പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു ശാസ്ത്ര സാങ്കേതിക മേഖലകളിൽ ഗവേഷണവും നവീന ആശയങ്ങളും പരിപോഷിപ്പിക്കാനായി നടപ്പാക്കി വരുന്ന വിവിധ നടപടികൾ കൌൺസിൽ അംഗങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു

സമ്മതിദായകരെ സ്വാധീനിക്കാനുള്ള ഒരു അവസരവും രാഷ്ട്രീയ പാർട്ടികൾ പാഴാക്കുന്നില്ല മധ്യപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തി

പുനപരിശോധനാ ഹർജികളിൽ തുറന്ന കോടതിയിൽ വാദം കേൾക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയിയുടെ ചേംബറിൽ ചേർന്ന അഞ്ചംഗ ബെഞ്ചിന്റേതാണ് തീരുമാനം ശബരിമല വിഷയത്തിൽ സമർപ്പിക്കപ്പെട്ട നാല് റിട്ട് ഹർജികളും പുനപരിശോധനാ ഹർജികൾക്കൊപ്പം വാദം കേൾക്കും കേരള ഗവൺമെന്റിനും ബന്ധപ്പെട്ട എല്ലാ കക്ഷികൾക്കും നോട്ടീസ് അയയ്ക്കാനും സുപ്രീംകോടതി തീരുമാനിച്ചു

ഈ വിധി പുനപരിശോധിക്കണമെന്നപേക്ഷിച്ച ഹർജികളാണ് കോടതി ഇന്ന് പരിഗണിച്ചത്

ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ജഡ്ജി പി മനോജ് ഹൈക്കോടതിക്ക് നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി വിഷയത്തിൽ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഗവൺമെന്റിനോടും ദേവസ്വം ബോർഡിനോടും ഹൈക്കോടതി ആവശ്യപ്പെട്ടു സ്ത്രീകൾ ആക്രമിക്കപ്പെട്ട സംഭവം ആചാര ലംഘനങ്ങൾ ഭക്തരുടെ പരാതികൾ തുടങ്ങിയവ സംബന്ധിച്ചാണ് ജില്ലാ ജഡ്ജി കൂടിയായ സ്പെഷ്യൽ കമ്മീഷ്ണർ റിപ്പോർട്ട് നൽകിയത്

വിവിധ നദീ തടാക ജലസംഭരണി തടങ്ങളിൽ ഭക്തജനങ്ങളുടെ കൂട്ടായ്മ ആരംഭിച്ചതായി ആകാശവാണി ലേഖകൻ അറിയിക്കുന്നു ആഘോഷ സ്ഥലങ്ങളിലേക്കുള്ള റോഡുകൾ വർണ്ണാഭമായി അലങ്കരിച്ചിട്ടുണ്ട് ഉത്സവം കൊണ്ടാടുന്നതിനായി ഔറംഗാബാദിലെ ദിയോ നളന്ദയിലെ ബർകഗാവോ പാലിഗഞ്ചിലെ ഉലർ ഉൾപ്പെടെയുള്ള സൂര്യക്ഷേത്രങ്ങളിൽ ഭക്തജനത്തിരക്കുണ്ട് വിക്രം സംവദിലെ കാർത്തിക മാസത്തിലെ ആറാമത്തെ ദിവസമാണ് ഛത് ഉത്സവം ആഘോഷിക്കുന്നത്

ഭക്ഷ്യസുരക്ഷാ അടിസ്ഥാന നിയമം മറ്റ് നിബന്ധനകൾ എന്നിവ അനുസരിക്കുന്ന വ്യാപാരികളെയും മത്സ്യ വ്യവസായികളേയും ലൈസൻസ് ജൂട്ടമകളേയും ഉത്തരവിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് സംസ്ഥാനം പ്പോലീസിനും ഗതാഗത വകുപ്പിനുമാണ് നിയന്ത്രണം നട്ടപ്പിൽ വരുത്തേണ്ടതിന്റെ ചുമതല ഗോവയിൽ ഇറക്കുമതി ചെയ്ത് മീസ്യങ്ങളിലെ ഫോർമാലിൻ സാന്നിധ്യം സംബന്ധിച്ച് നില്ലിന്റിൽക്കുന്ന അനിശ്ചിതത്വമാണ് ഇത്തരമൊരു നിലപാട്ടില്ലേക്ക് ഗവൺമെന്റിനെ നയിച്ചത്

എൻ അനന്ത കുമാറിന്റെ സംസ്ക്കാരം ബംഗളുരുവിലെ ചാംരാജ് പേട്ടിൽ നടന്നു

അനന്തകുമാറിനോടുളള ആദരസൂചകമായി കർണ്ണാടകത്തിൽ മൂന്നു ദിവസത്തെ ഔദ്യോഗിക ദുഖാചരണമാണ് ഭൌതിക ശരീരത്തിൽ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പേർ അന്തിമോപചാരം അർപ്പിച്ചു അർബുദ രോഗത്തെത്തുടർന്ന് ഇന്നലെ പുലർച്ചെയായിരുന്നു അനന്ത്കുമാർ അന്തരിച്ചത്

പല്ലൻവല്ല മേഖലയിൽ കടന്നുകൂടാൻ ശ്രമിച്ച ആയുധധാരിയെ സേനാംഗങ്ങൾ കണ്ടെത്തുകയായിരുന്നു തുടർന്ന് ആയുധധാരി വെടിയുതിർക്കുകയും പോരാട്ടത്തിൽ അയാൾ കൊല്ലപ്പെടുകയുമായിരുന്നുക് വിളരെയധികം ആയുധശേഖരം ഇയാളുടെ പക്കൽനിന്നൂർ പ്പിടിച്ചെടുത്തു മേഖലയിൽ തിരച്ചിൽ തുടരുകയാണ്

വിശദാംശങ്ങളുമായി പ്രസാദ്

ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അക്കാദമിക പ്രവർത്തനങ്ങൾക്കായി സംഘടിപ്പിക്കുന്ന രണ്ടാം ഘട്ട പരിശീലന പരിപാടിയാണ് ലീപ്

സിംഗ് മൊറോക്കോ നീതിന്യായ വകുപ്പ് മന്ത്രി മുഹമ്മദ് ഔജ്ജാർ എന്നിവരാണ് കരാറിൽ ഒപ്പുവച്ചത് ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിലാണ് ഇന്ത്യ മൊറോക്കോ ചർച്ച കേന്ദ്രീകരിക്കുന്നതെന്ന് വിദേശകാര്യ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു

എല്ലാവർക്കും സുരക്ഷിതത്വവും വളർച്ച്യും എന്നതാണ് ഈ വർഷത്തെ വിഷയം ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ നാവികസേനയുടെ നേതൃത്വത്തിൽ ഇൻഫർമേഷൻ ഫ്യൂഷൻ കേന്ദ്രങ്ങൾ ആരംഭിക്കുമെന്ന് നാവികസേനാ മേധാവി അഡ്മിറൽ സുനിൽലാംബ കൊച്ചിയിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു അംഗരാഷ്ട്രങ്ങളെ ഉൾപ്പെടുത്തി രൂപം നൽകുന്ന കേന്ദ്രം കടൽ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും വിശകലനം ചെയ്യുക എന്നും സുനിൽലാംബ അറിയിച്ചു

സി രാജ്യാന്തര ഏകദിന മത്സരം റാങ്കിംഗിന്റെ ഏറ്റവും പുതിയ പട്ടികയിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ വിരാട് കോലി ഫാസ്റ്റ് ബൌളർ ജസ്പ്രീത് ബുമ്രാഹ് എന്നിവർ ഉന്നത സ്ഥാനങ്ങൾ നിലനിർത്തി